കണ്ണൂരിൽ പത്ത് പേർക്ക് രോഗബാധ

മാ്ർഗ്ഗ്ഗ്നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ ശേഷം ദ്രുത പരിശ്ശോധന നടത്തിയാൽ മതി

ഇതിൽ കണ്ണൂരിൽ രോഗം സ്ഥിരീകരിച്ച ഒമ്പത് പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്

പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ലോക്ഡൌൺ കർശനമായി നടപ്പാക്കും

മാത്രമെ തുറക്കാവു

ആരോഗ്യമന്ത്രാലയം റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ ഉപയോഗിച്ചുള്ള ദ്രുത പരിശോധന നടത്തുന്നത് രണ്ട് ദിവസത്തേക്ക് നിർത്തിവയ്ക്കണമെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തി മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ ശേഷം ദ്രുത പരിശോധന നടത്തിയാൽ മതിയെന്നും നിർദ്ദേശം നൽകിയതായി ഐ സി എം ആർ പ്രതിനിധി ആർ

ദ്രുത പരിശോധനയുടെ ഫലത്തിന്റെ കൃത്യതയിൽ കൂടുതൽ വ്യക്തത ആവശ്യമുള്ളതിനാലാണ് ഇത്

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലും കൃാൻസർ വൃക്ക രോഗങ്ങൾ എച്ച് ഐ

തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മുടങ്ങരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്

അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഉത്തരമേഖല്ല് ഐ

വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ തെങ്കാശി അടക്കമുള്ള ഇടങ്ങളിൽ കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാലാണ് പ്രദേശത്ത് അതീവ ജാഗ്രത ഏർപ്പെടുത്തിയത്

ആവശ്യമെങ്കിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

നോർക്ക ഇൻട്രോ ഈ കോവിഡ് രോഗ കാലത്ത് പ്രപ്പിസി മലയാളികളുടെ ക്ഷേമം ഉറപ്പൂവരുത്തുന്നത് ലക്ഷ്യമിട്ട് വീവിധ പദ്ധതികളാണ് നോർക്ക റൂട്ട്സിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്

മറ്റൊരു സംരംഭമായ ക്ട്ക്ലോ ഡോക്ടർ എന്ന പദ്ധതിയിലൂടെ പ്രവാസി മലയാളികൾക്ക് കേരളത്തിലെ ഡോക്ടർമാരുമായി ബന്ധപ്പെടുന്നതിനും ചികിത്സാ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും സാധിക്കും പ്രവാസികൾക്കായി വിവിധ സാമ്പത്തിക പാക്കേജുകളും നോർക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് നോർക്കയുടെ റെസിഡന്റ് വൈസ് ചെയർമാൻ ശ്രീ വരദരാജൻ ആകാശവാണിയോട്

ഇതിനായി ഒത്തുചേർന്നുള്ള പ്രാർത്ഥന ഇഫ്താർവിരുന്നുകൾ നോമ്പ് പൊതുസ്ഥലങ്ങളിലെയും കഞ്ഞിവിതരണം ആരാധനാലയങ്ങളിലെയും മതപ്രസംഗങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ധാരണയായി

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഇവർ സജീവമാണെന്നും മന്ത്രി വൃക്തമാക്കി

വിശദാംശങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ

തിരുവനന്തപുരം റൂറലിലാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ഉണ്ടായത്

പരീക്ഷാ തീയതികൾ അതതു സർവ്വകലാശാലകൾക്ക് തീരുമാനിക്കാം

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

ദേശീയ ഗ്രാമീണ തൊഴീലുപ്പ് തൊഴിലാളികളുടെ വേതനത്തിൽ കേന്ദ്രം വരുത്തിയ പ്രാപർദ്ധന പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു

ഓഹരി രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം